രാജിക്കത്ത് കൈമാറും സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് തുടക്കം

സംസ്ഥാനത്ത് നാളെ മുത്രിൽ ആറ് ദിവസം അടച്ചുപൂട്ടലിന് സമാർമാർ നിയന്ത്രണങ്ങൾ

മുൻ മന്ത്രി ആർ

രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാജ്ഞലി സംസ്ക്കാരം വൈകിട്ട് ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യ ദിനം

മന്ത്രിസഭാ യോഗത്തിനുശേഷം ഉച്ചയ്ക്ക് രാജ്ഭവനിലെത്തിയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് രാജി നൽകുക സർക്കാർ രൂപീകരണം സംബന്ധിച്ച് സി

ഐ എമ്മും എൽ

എഫും ഇന്ന് ചർച്ച ആരംഭിക്കും നാളെ ചേരുന്ന സി

ഇതിന് മുന്നോടിയായി സംസ്ഥാനത്തെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും യോഗം ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തി രാവിലെ വിമാന മാർഗ്ഗമാണ് അദ്ദേഹം എത്തിയത്

കണ്ണൂർ നിരോധനാജ്ഞ അക്രമ സാധ്യതകൾ കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ ചൊക്ലി കൊളവല്ലൂർ ന്യൂമാഹി പാനൂർ പൊലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ അർദ്ധരാത്രി വരെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രദേശത്ത് സമാധാനം നിലനിർത്താനും കോവിഡ് വ്യാപനം തടയാനുമാണ് സിറ്റി പൊലീസ് കമ്മീഷണറുടെ അഭ്യർത്ഥന പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് ജാഥകളും ജനങ്ങൾ കൂട്ടം കൂടുന്നതും കർശനമായി നിരോധിച്ചു

സി സി സെക്രട്ടറിയുമായ കെ നബീസ ബീവിയുടെ വീടിനു നേരെ ബോംബെറിഞ്ഞു ആളപായമില്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ക്ടുത്തിവയ്പ്പ് ഇന്ന് പുനരാരംഭിക്കും രണ്ടാം ഡ്ടോസ് കുത്തിവയ്പ്പിനായിരിക്കും മുൻഗണന

തുടർച്ചയായ ആറാം ദിവസമാണ് പ്രതിദിന രോഗവ്യാപനം മുപ്പതിനായിരം കടക്കുന്നത് കോഴിക്കോട് തൃശൂർ എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ഇന്നലെ ഉയർന്ന രോഗവ്യാപനം രേഖപ്പെടുത്തി

എം എ ദേശീയ സമിതി അംഗമായ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ആകാശവാണി വാർത്തകളോട്

ബാലകൃഷ്ണപിള്ള യുടെ സംസ്ക്കാരം വൈകിട്ട് അഞ്ചിന് വാളകത്തെ തറവാട്ട് വളപ്പിൽ നടക്കും

രാവിലെ കൊട്ടാരക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികശരീരം പിന്നീട് പത്ത്നാപുരം എൻ എസ്

നിരവധി രാഷ്ട്രീയ സാമുദ്ദായിക നേതാക്കളും പൊതുജനങ്ങളും അന്തിമോപചാരമർപ്പിച്ചു പ്പുലർച്ചെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആർ

വാർദ്ധകൃസഹജമായ രോഗപീഡകളെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു

ബാലകൃഷ്ണപിള്ള കേരളാ കോൺഗ്രസ് സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്

അച്യുതമേനോൻ ഇ

കരുണാകരൻ എ കെ ആന്റണി മന്ത്രിസഭകളിൽ അദ്ദേഹം അംഗമായിരുന്നു ദീർഘകാലം ഗതാഗത മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള എക്സൈസ് ജയിൽ വൈദ്യുതി വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ മന്ത്രി എ കെ ബാലൻ അനുശോചനം രേഖപ്പെടുത്തി കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ സജീവ സാന്നിധ്യമായിരുന്ന ബാലകൃഷ്ണപിള്ള മികച്ച പാർലമെന്റേറിയനായിരുന്നു എന്ന് മന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി അദ്ധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവരും ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തപാൽ വോട്ട് പരാതി തപാൽവോട്ട് എണ്ണിയില്ലെന്ന് പരാത്രീപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് മലപ്പുറം പെര്യിന്ത്ർമണ്ണയിൽ പരാജയപ്പെട്ട എൽ

എം മുസ്തഫ എൺപത് വയസിന് മുകളിലുള്ളവരുടെ സ്പെഷ്യൽ തപാൽവോട്ടുകൾ തുറസ്സ്ട് എ്ണ്ണമെന്ന് ചീഫ് ഏജന്റ് ആവശ്യപ്പെട്ടെങ്കിലും വരണ്ണാധികാരി നിരസിച്ചതായി ശ്രീ മുസ്തഫ ആരോപിച്ചു തമിഴ്നാട് തമിഴ്നാട്ടിൽ ഡിഎംകെ സഖ്യം ഒരിടവേളക്ക് ശേഷം അധികാരത്തിലേക്ക്

ഒരിടത്ത് മുന്നിലാണ്

പട്ടാളി മക്കൾ കച്ചി അഞ്ച് സീറ്റുകളിൽ വിജയിച്ചു

ഒൻപത് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു മൂന്ന് സീറ്റുകൾ ലഭിച്ച ബി ജെ പി ഒരിടത്ത് മുന്നിലാണ്

കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഭരണകക്ഷിയായ കോൺഗ്രസിന് രണ്ടിടത്താണ് ജയിക്കാനായത് ഡിഎംക്കെ യും കക്ഷിരഹിതരും ആറ് സീറ്റ് വീതം നേടി

പൊതുനന്മയ്ക്കായി വ്യിവരങ്ങൾ നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം വൈവിദ്ധ്യവും സ്വതന്ത്രവും സുതാര്യവുമായ മാധ്യമ സംസ്ക്കാരം വളർത്താൻ അംഗരാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് കഴിയണമെന്ന് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു സ്വന്തം തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം പല രാജ്യങ്ങളിലെയും മാധ്യമ പ്രവർത്തകർ തിരസ്ക്കരിക്കപ്പെടുന്ന തായും അകാരണമായി മരണമടക്കമുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനിടയിലും മാധ്യമ പ്രവർത്തനത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും മുൻ എം പി യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആകാശവാണി വാർത്തകളോട്

അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അപകടം അറിഞ്ഞ് പോലീസും അഗ്നിരക്ഷാ വിഭാഗവും സ്ഥലത്തെത്തി സ്വർണ്ണവില സംസ്ഥാനത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വർദ്ധന